കോട്ടയത്ത് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് കോവിഡ്ബാധ രാജ്യത്തെ ഏത് വെല്ലുവിളിയും നേരിടാൻ സൈനൃം സജ്ജമെന്ന് ഏഴിമല നാവിക്ക് അക്കാഡമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ കരസേനാട്രമധ്ാവി ജനറൽ എംഎം നരവനെ

സംസ്ഥാന തിരഞ്ഞെടുപ്പു കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർ നടപടികളാരംഭിച്ചു

ഇതോടെ പ്രചാരണത്തിൽ സുരക്ഷക്ക് മുൻതൂക്കം കൃൽകാൻ മൂന്നു മുന്നണികളും നിർദേശം നൽകി

സുരേന്ദ്രൻ ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുപ്പു കൺവെൻഷനുകളിൽ ബി ജെ

തെരെഞ്ഞെടുപ്പ് ആലപ്പുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനുകൾ ആലപ്പുഴ കലക്ടറേറ്റ് കാര്യാലയത്തിൽ നിന്നും വിതരണം ചെയ്തു തുടങ്ങി

സ്ഥാനാർത്ഥികൾ എസ്റ്റേറ്റുകളില്ലിത്തി തൊഴിലാളികളോട് വോട്ടഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശ്വാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

രാജ്യത്തിനകത്ത് നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്തൃ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കേഡറ്റുകളുടയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും കേഡറ്റുകൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ പലർക്കും ർഇ്പ്പോൾ ജാഗ്രത കുറവ് ഉണ്ടെന്നും ഇത് പാടില്ലെന്നും അദ്ദേഹം ്കോവിഡ് സന്ദേശത്തിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ബെനാമി പേരുകളിൽ ജീവനക്കാർ ചിട്ടി പിടിക്കുന്നതായും കണ്ടെത്തി

ശിവശങ്കറിന്റെ വാട്ട്സ്ആപ് ചാറ്റുകൾ ആവശ്യപ്പെട്ട് വിജിലൻസ് എൻ ഐ

അന്വേഷണം വ്യാപിപ്പിക്കാൻ ഈ രേഖകൾ ആവശ്യമാണെന്ന് വിജിലൻസ് എൻ ഐ എ കോടതിയെ അറിയിച്ചതായാണ് റിപ്പോർട്ട്

സുരേന്ദ്രൻ സ്വർണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ്കെ

ഇതിൽ ചിലർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പി

എം രവീന്ദ്രന്റെ ബന്ധുക്കളാണെന്നും ഇവർ കേസിന്റെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ രംഗത്ത് വന്നിരുന്നുവെന്നും ശ്രീ

മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം